പി സ്ഥാനാർത്ഥി യായി വിശേശ്വർ ഹെഗ്ഡേ കഗേരി മത്സരിക്കും

എഫ് ഏകോപനസമിതി യോഗം തിരുവനന്തപുരത്ത് പുരോ ഗമിക്കുന്നു

ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് ബില്ല് അവതരിപ്പിച്ചത് ഇന്ന് സഭയിൽ ഹാജരാകാൻ ബി

പി അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്

ഐ

എസ് കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നാണ് റിപ്പോർട്ട് മുത്തലാഖ് ബിൽ കഴിഞ്ഞ ആഴ്ച ലോക്സഭ പാസ്സാക്കിയിരു ന്നു കർണാടകയിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ബി

പി സ്ഥാനാർത്ഥി യായി വിശേശ്വർ ഹെഗ്ഡേ കഗേരി മത്സരിക്കും രാവിലെ ബംഗുളൂരുവി ലാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുൻ സ്പീക്കർ കെ ജി ബൊപ്പയ്യയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചെങ്കിലും അദ്ദേഹം മത്സരിക്കാൻ തയാറാകാത്ത സാഹചര്യത്തിലാണ് കഗേരിയെ സ്ഥാനാർത്ഥിയാക്കിയത്

എസ് യെദ്യൂര്യപ്പ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടിയതിനെ തുടർന്ന് കെ ആർ രമേഷ്കുമാർ സ്പീക്കർ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് അതേസമയം പ്രതിപക്ഷം ഇതുവരെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല നാമനിർദേശ പത്രിക സമർപ്പിക്കാൻ സമയപരിധി ഇന്ന് അവസാനിക്കും സംസ്ഥാനത്ത് അതിവേഗ റെയിൽപാതാ പദ്ധതിയുടെ അലൈൻമെന്റിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം അംഗീകാരം നൽകി തിരുവനന്തപുരം കൊച്ചുവേളി മുതൽ കാസർഗോഡ് വരെയായിരിക്കും പുതിയ അതിവേഗ റെയിൽപാത കൊച്ചുവേളി മുതൽ തിരൂർ വരെ പുതിയ റെയിൽപാതയും തിരൂർ മുതൽ കാസർഗോഡ് വരെ സമാന്തര പാതയും നിർമിക്കാനാണ് നിർദേശം പദ്ധതിക്ക് മന്ത്രിസഭാ യോഗം വൈകാതെ അംഗീകാരം നൽകും കൊച്ചുവേളിയിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ സമുച്ചയവും ഒമ്പത് പുതിയ സ്റ്റേഷനുകളും നിർമിക്കും

സംസ്ഥാന ഗവൺമെന്റിനെതിരായ സമര പരിപാടികൾക്ക് യോ ഗം രൂപം നൽകും

സി പൊലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് വൈദ്യുതി ചാർജ്ജ് വർധന യൂണിവേഴ്സിറ്റി കോളജ് വിവാദം തുടങ്ങി യ വിഷയങ്ങൾ ചർച്ചയാകും ഉപ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും ചർ ച്ച ചെയ്തേക്കും സർവീസിൽ തിരിച്ചെടുക്കണമെന്ന കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂ ണൽ ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റിന് ഡി

ജേക്കബ് തോമസിനെ ചുമതലകൾ നൽകാതെ ദീർഘകാലം സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയത് ശരിയായി ല്ലെന്നും ട്രിബ്യൂണൽ ഇന്നലെ കണ്ടെത്തിയിരുന്നു വ്യവസായിയും കർണാടക മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണയുടെ മരുമകനുമായ വി ജി സിദ്ധാർത്ഥിനായി മംഗലാപുരത്ത് നേത്രാവതി പുഴ യിൽ തിരച്ചിൽ തുടരുന്നു ഇന്നലെ രാത്രിനേത്രാവതി പുഴയ്ക്ക് സമീ പത്ത് നിന്നാണ് കഫേ കോഫീ ഡേ സ്ഥാപകനായ സിദ്ധാർത്ഥിനെ കാണാതായത് നേത്രാവതി പുഴയ്ക്ക് സമീപം കാറിൽ നിന്നിറങ്ങി നടന്ന സിദ്ധാർത്ഥിനെ നിമിഷങ്ങൾക്കകം ക്ലാണാതാവുകയായിരുന്നു

സംരം ഭകൻ എന്ന നിലയിൽ പരാജയപ്പെട്ടെന്നും കമ്പനിയെ ലാഭത്തിലെത്തി ക്കാൻ ആയില്ലെന്നും കത്തിൽ പറയുന്നു ആദായനികുതി വകുപ്പിൽ നിന്ന് വലിയ സമ്മർദ്ധമുണ്ടായെന്നും സൂചനയുണ്ട്

നിലമ്പൂരിൽ മയക്കുമരുന്ന് കേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടെ എ ക്സൈസ് ഇൻസ്പെകടർക്ക് വെടിയേറ്റു നിലമ്പൂർ എക്സൈസ് റെയി ഞ്ച് ഇൻസ്പെക്ടർ മനോജ് കുമാറിനാണ് കാലിന് വെടിയേറ്റത് വെടിവെ ച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച കോട്ടയം സ്വദേശി ജോർജ്കുട്ടിയെ എക് സൈസ് പിടികൂടി

പ്രതി എക്സൈസ് സംഘത്തിന് നേരെ നട ത്തിയ വെടിവെയ്പിലാണ് മനോജ് കുമാറിന് കാലിന് പരിക്കേറ്റത് തുടർന്ന് എക്സൈസ് സംഘം ഇയാളെ ഓടിച്ച് പിടികൂടി അമ്പൂരി രാഖി കൊലക്കേസിൽ പ്രതികളുമായി കൂടുതൽ തെളിവെടുപ്പ് നടത്താൻ പൊലീസ് തീരുമാനിച്ചു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഒന്നാംപ്രതി അഖിലിനെയും രണ്ടാംപ്രതി രാഹുലിനെയും വിട്ടുകിട്ടാൻ ഇന്ന് അപേക്ഷ നൽകും ഇന്നലെ ഒന്നാം പ്രതി അഖിലിന്റെ അമ്പൂരിയി ലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു രാഖിയുടെ മൃതദേഹം ചതുപ്പിൽ ഉപേക്ഷിക്കാനോ പുഴയിൽ കെട്ടിത്താ ഴ്ത്താനോ പ്രതികൾ ആലോചിച്ചിരുന്നെന്നും അത് നടക്കാത്തതിനെ തുടർന്നാണ് വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടതെന്നും പൊലീസിന് മൊഴി ലഭിച്ചി ട്ടുണ്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബിൽ പാസ്സാക്കിയതിനെതിരെ ഡോക്ടർമാർ നാളെ രാജ്യവ്യാപകമായി പണിമുടക്കും

അത്യാഹിത വിഭാഗത്തെയും ശസ്ത്രക്രിയകളെയും സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

മൂന്ന് മാസത്തോളം നീണ്ട വിചാരണ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായി

ജോസഫിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊല്ലം സ്വദേശി നീനുവിനെ പ്രണയിച്ച് വിവാഹം ചെയ്ത ദിവസം നീനുവിന്റെ ബന്ധു ക്കളും സുഹൃത്തുക്കളും ചേർന്ന് കെവിനെ തട്ടിക്കൊണ്ടു പോയി കൊല പ്പെടുത്തിയെന്നാണ് പ്രൊസിക്യൂഷൻ കേസ് ഉന്നാവിൽ പീഡനത്തിനിരയായ പെൺകുട്ടി സഞ്ചരിച്ച വാഹനം അപക ടത്തിൽപെട്ടത് സംബന്ധിച്ച അന്വേഷണം സിബിഐക്ക് വിടണമെന്ന് ഉത്തർപ്രദേശ് ഗവൺമെന്റ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച കത്ത് ഗവൺമെന്റ് കേന്ദ്രത്തിനയച്ചു പിതൃമോക്ഷത്തിന് നാളെ കർക്കിടക വാവുബലി മരണപ്പെട്ട മുൻഗാമി കളുടെ മോക്ഷത്തിന് പിൻതലമുറയുടെ പ്രാർത്ഥന നിറയുന്ന കർക്കിടക അമാവാസി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബലി തർപ്പണത്തിന് സ്നാനഘ ട്ടങ്ങളിലും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും ഒരുക്കങ്ങൾ പൂർത്തിയായി

ആലുവാ മണപ്പുറം ചേലാമറ്റം വെട്ടൂർ മഹാദേവ ക്ഷേത്രം തിരമുല്ലവാരം തിരുനാവായ തിരുനെല്ലി തലസ്ഥാനത്ത് ശംഖു മുഖം തിരുവല്ലം വർക്കല പാപനാശം അരുവിക്കര കോഴിക്കോട് വര ക്കൽ ശ്രീകണ്ഠേശ്വരം എന്നിവിടങ്ങളിൽ ബലിതർപ്പണത്തിന് ആയിര ങ്ങളെത്തും ആലുവ അദ്വൈതാശ്രമത്തിന്റെ നേതൃത്വത്തിലും ബലിത്തറ കൾ സജ്ജീകരിച്ചിട്ടുണ്ട് ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് കെഎസ്ആർടിസി പുലർച്ചെ മുതൽ പ്രത്യേക സർവ്വീസുകൾ നടത്തും ദേശീയപാതയിൽ കോഴിക്കോട് പയ്യോളി അയനിക്കാട് കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് രണ്ട് മെഡിക്കൽ വിദ്യാർഥികൾ മരിച്ചു വടകര ചോമ്പാല കുഞ്ഞിപ്പള്ളി തൌഫീഖ് മൻസിൽ മുഹമ്മദ് ഫായിസ് പേരാ മ്പ്ര പൈതോത്ത് വീട്ടിൽ വിഷ്ണു എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരിക്കുകയായിരുന്നു തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരു ന്ന കാറും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി യുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് ദേശീയ പാതയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് ഉണ്ടായി മുൻ ഐ

എൽ താരവും ബ്രസീലിയൻ മിഡ്ഫീൽഡറുമായ ബ്രൂ ണോ പെലിസാരി ഗോകുലം കേരള എഫ് സിയിൽ ചേർന്നു കഴിഞ്ഞ ദിവസം ടീമുമായി കരാറിലേർപ്പെട്ട പെലിസാരി കോഴിക്കോട് കോർപറേ ഷൻ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിൽ പങ്കെടുത്തു അടുത്തമാസം എ ട്ടിന് ഡ്യൂറന്റ് കപ്പിൽ ശക്തമായ താരനിരയുമായി ഗ്ഗോകുലം കേരള എ ഫ്

ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഗോകുലം കേരള എഫ് സി ഓഗസ്റ്റ് ഒന്നിന് കൊൽക്കത്തയിലേക്ക് തിരിക്കും നാലാമത് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമാ യി കണ്ണൂർ ജില്ലാതല ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച കല്യാശ്ശേരിയിൽ നട ക്കും

തിരുവനന്തപുരം യൂനിവേഴ്സിറ്റി കോളജ് സംഭവത്തോട് ബന്ധപ്പെട്ട് ഒരാൾ കൂടി പിടിയിൽ

ഓമ ശ്ശേരി ജല്ലറി കവർച്ചാ കേസിലെ പ്രതി ബംഗ്ലാദേശ് സ്വദേശി നഈം അലിഖാനാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് റിമാൻഡ് കാലാവധി അവസാനി ച്ചതിനെ തുടർന്ന് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി മടങ്ങും വഴിയാ യിരുന്നു സംഭവം

നിർദിഷ്ട കേരള ബാങ്കി ലേക്ക് ശക്തമായ സാമ്പത്തിക അടിത്തറയോടു കൂടിയാണ് കെഡിസി ബാങ്ക് ലയിക്കാനൊരുങ്ങുന്നതെന്ന് സഹകരണ സംഘം ജോയിന്റ് രജി സ്ട്രാറും അഡ്മിനിസ്ട്രേറ്ററുമായ വി

രാധാകൃഷ്ണൻ അറിയിച്ചു കോഴിക്കോട് ജില്ലയുടെ സമഗ്ര വിക്സനത്തിനായി ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ തയാറാക്കിയ സമഗ്ര പദ്ധതി രേഖ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പ്രകാശനം ചെയ്തു കോഴി ക്കോട് ജില്ലയുടെ വികസന സാധൃതകളും വിഭവ ലഭൃതയും വികസന ത്തിലെ തടസ്സങ്ങളും പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വയനാട് പനമരം പരിയാരത്ത് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ കാട്ടാ നകൾ ഷോക്കേറ്റ് ചരിഞ്ഞതിന് പിന്നിൽ വൈദ്യുതി വകുപ്പിന്റെ കടുത്ത അനാസ്ഥയാണെന്ന് കാണിച്ച് പ്രദേശവാസികൾ മന്ത്രിക്കും ഉദ്യോഗ സ്ഥർക്കും പരാതി നൽകി നിരവധി തവണ പരാതി നൽകിയിട്ടും താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് അപ കടത്തിനു കാരണമായതെന്ന് പരാതിയിൽ പറയുന്നു കാട്ടാനയുടെ ജഢം കുടിവെള്ള സ്രോതസ്സിനു സമീപമായി സംസ്ക്കരിച്ച വനംവകുപ്പിന്റെ നട പടിക്കെതിരെയും പ്രതിഷേധം ശക്തമായിട്ടുണ്ട്

അലൈഡ ഗുവേര മറ്റന്നാൾ കണ്ണൂരിൽ എത്തും

സ്വതന്ത്ര ക്യൂബയുടെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ യിലും നേപ്പാളിലുമായി നടക്കുന്ന പരിപാടികളിൽ സ്രംബന്ധിക്കാനായി എത്തുന്ന അലൈഡയുടെ കേരളത്തിലെ ആദ്യ പൊതുപരിപാടിയാണ് കണ്ണൂരിലേത് തിരുവനന്തപുരത്ത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജ യനുമായി അലൈഡ ഗുവേര കൂടിക്കാഴ്ച്ച നടത്തിയിരുന്നു